കണ്ണൂർ ജില്ലയിൽ രണ്ട്രുപേർക്കും ത്യശുർ കോഴിക്കോട് കൊല്ലം ജില്ലകളിലെ ഔരോരുത്തർക്കുമാണ് രോഗം സ്ഥിരീകരിച്ചത് ആകെ ഒരു ലക്ഷത്തി ്പതിനായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതുപേർ ഇപ്പോൾ തിരീക്ഷണത്തിലുണ്ട് കൂടുതൽ വിവരങ്ങളുമായി ്സുർരേഷ്

വിദേശങ്ങളിൽനിന്ന് വന്നവരുമായി സമ്പർക്കം പുലർത്തിയവരും കൂടുംബാംഗങ്ങളും നിർബന്ധിത ഐസൊലേഷന് വിധേയമാക ണം

കാസർകോട് സെൻട്രൽ യൂണിവേഴ്സിറ്റിയെ കോവിഡ് പ്രാഥമിക ചികിത്സാ കേന്ദ്രമാക്കി മാറ്റണം

നോൺ ബാങ്കിങ് ചിട്ടി സ്ഥാപനങ്ങളും ഇതര സ്വകാര്യ പണമിടപാ ട്ട് സ്ഥാപനങ്ങളും റിക്കവറി നിർത്തിവെക്കാൻ നിർദേശം നൽകിയി ട്ടുണ്ട്

ന്യൂസ് ഡെസ്ക് ആകാശവാണി

തിങ്കളാഴ്ച മുതൽ ഈ സൌകര്യം ലഭ്യമാകും

ആശുപത്രിയിൽ പോകാനാകാത്ത സാഹചര്യത്തിൽ വീട്ടിലിരുന്നുതന്നെ ആരോഗൃകാരൃങ്ങളിൽ ടെലിമെഡിസിൻ സൌകര്യത്തിലൂടെ ആശങ്കയകറ്റാനും ചികിത്സാ മാർഗനിർദേശങ്ങൾ ലഭ്യമാകാനും കഴിയുമെന്നതാണ് പ്രത്യേകത സർക്കാർ ഡോക്ടർമാരുടെയും വിദഗ്ധരുടെയും വലിയൊരു ശൃംഖലയ്ക്ക് പുറമേ സ്വകാര്യ ഡോക്ടർമാർ ഉൾപ്പെടെയുള്ളവരുടെ സേവനം ഈ പോർട്ടലിലൂടെ ജനങ്ങൾക്ക് ലഭ്യമാകും

ന്നേരത്തെ ഈ കുട്ടിയുടെ പിതാവിന് രോഗം സ്ഥിരീകരിച്ചു കാസർകോട് ജില്ലയിൽ നിന്നും ആകാശവാണി പ്രതിനിധി പി ജഗന്നിവാസൻ

ഇത് സംബന്ധിച്ച് കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി സംസ്ഥാനങ്ങൾക്കും കേന്ദ്ര ഭരണ പ്രദേശങ്ങൾക്കും കത്തെഴുതി തൊഴിലാളികൾക്കും വിദ്യാർത്ഥികൾക്കും അവർ താമസിക്കുന്ന സ്ഥലങ്ങളിൽ തന്നെ തുടരാൻ അനുവദിക്കണം ഇതിനായി വിവിധ ഏജൻസികളുടെ സഹായം തേടാവുന്നതാണെന്നും നിർദ്ദേശിച്ചിട്ടുണ്ട് കൌൺസലിംഗ് ഹോം ക്വാറന്റയിനിൽ കഴിയുന്നവർക്ക് ഭാരതീയ ചികിൽസാ വകുപ്പ് കൌൺസലിംഗ് സേവനം നൽകുന്നു ഒറ്റപ്പെട്ടു കഴിയേണ്ടിവരുമ്പോഴുള്ള മാനസിക സമ്മർദ്ദം ഒഴിവാക്കുന്നതിനാണ് ഹലോ മൈ ഡിയർ ഡോക്ടർ എന്ന പേരിൽ എല്ലാ ജില്ലകളിലും ടെലഫോൺ വഴി കൌൺസലിംഗ് സംവിധാനം ഏർപ്പെടുത്തിയിരിക്കുന്നത്

പരിശോധന ഫലം തുടർച്ചയായി നെഗറ്റീവ് ആയതിനെ തുടർന്ന് ഒരാൾ നേരത്തെ ആശുപത്രി വിട്ടിരുന്നു ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ

ശശിധരൻ നൽകുന്ന റിപ്പോർട്ട്

കേരളത്തിലേക്കുള്ള ചരക്കുനീക്കത്തിന്റെ പ്രധാനപ്പെട്ട പാതയാണിത്

അടിയന്തിരമായി ് ഈ കാര്യത്തിൽ ഇടപെടുകയും കർണാടകയിൽ നിന്ന് കേരളത്തിലേക്ക് ചരക്കുനീക്കത്തിനുള്ള സാഹചരൃം ഉണ്ടാക്കുകയും ചെയ്യണമെന്ന് മുഖ്യമന്ത്രി പ്രധാനമന്ത്രിയോട് ആവശ്യപ്പെട്ടു ഡ്രോൺ നിരോധനാജ്ഞ ലംഘിക്കുന്നതും ജനം കൂട്ടംകൂടുന്നതും കണ്ടെത്തി നടപടി സ്വീകരിക്കുന്നതിന് ഇന്നു മുതൽ സംസ്ഥാനത്ത് ഡ്രോണുകളുടെ സേവനം വിനിയോഗിക്കുകയാണ്

വാഹനങ്ങളെയും വ്യക്തികളെയും നേരിട്ട് സ്പർശിക്കാതെ ആയിരിക്കും വാഹന പരിശോധന ഉൾപ്പെടെയുള്ള പോലീസ് നടപടികൾ നടത്തുക ഇതിനായി എല്ലാ പോലീസ് ഉദ്യോഗസ്ഥർക്കും കയ്യുറകൾ നിർബന്ധമാക്കിയിട്ടുണ്ട്

ആവശ്യമെങ്കിൽ മതിയായ ദൂരത്തുനിന്ന് അവയുടെ ഫോട്ടോയെടുത്ത് തുടർ നടപടികൾ സ്വീകരിക്കാവുന്നതാണെന്ന് ഡിജിപി അറിയിച്ചു

കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി മലപ്പുറം ജില്ലാ പ്രതിനിധി സുരേഷ് ബാബു

വിവിധ രാജ്യങ്ങളിലായി അഞ്ചര ലക്ഷത്തിലധികം പേർക്ക് രോഗബാധ കണ്ടെത്തി

അമേരിക്കയിൽ ദിനം പ്രതി രോഗബാധിതരുടെ എണ്ണം കൂടുതലാണ്

ഇറാനിലും രോഗം പടരുകയാണ്

കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ആലപ്പുഴ ജില്ലാ പ്രതിനിധി രവി മാരാരി